സ്കൂളുകളിലെ ് ശുചിമുറി ലഭൃതയിൽ രാജ്യം വൻ ന് മുന്നേറ്റം കൈവരിച്ചതായി യു

റിപ്പോർട്ട്

ഭാരതം ആത്മവിശ്വാസമുള്ളതുർ വേഗത്തിൽ നവ വളരുന്നതുമായ സമ്പദ് വ്യവസ്ഥയാട്ടണെന്ന് സൈപ്രസിന്റെ തലസ്ഥാനമായ നിക്കോസിയയിൽ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്തു ക്രിാണ്ട് ശ്രീ

രാജ്യത്തിന്റെ സമഗ്ര വിക്സനത്തിൽ പ്രവാസികളുടെ സംഭാവന കഴിഞ്ഞ ഏതാനും വർഷങ്ങളിൽ ഗണ്യമായി വർദ്ധിച്ചിട്ടുണ്ട് ഇന്ത്യയും സൈപ്രസും പുരാതന സംസ്ക്കാരങ്ങളാണെന്നും സാംസ്ക്കാരിക വൈവിധ്യം പോലുള്ള നിരവധി വിശേഷണങ്ങൾ ഇരു രാജ്യങ്ങളും പങ്ക് വെയ്ക്കുന്നതായും രാഷ്ട്രപതി പറഞ്ഞു

ഇന്ത്യൻ അതിർത്തി രക്ഷാസേന ഡയറക്ടർ ജനറൽ കെ

ശർമ്മയും ബംഗ്ലാദേശ് അതിർത്തി സേനാതലവൻ ഷഫീനുൾ ഇസ്കാമുമാണ് ചർച്ചകൾക്ക് നേതൃത്വം നലകുന്നത് അതിർത്തിയിലൂടെയുള്ള മയക്കുമരുന്ന് കടത്ത് കന്നുകാലികടത്ത് ആയുധകടത്ത് എന്നിവ തടയാനുള്ള നടപടികൾ ചർച്ച ചെയ്യും

വിവിധ വിഷ്യങ്ങളിലെ ആശയങ്ങൾ കൈമാറുക പരസ്പര് സഹകരണം മെച്ചപ്പെടുത്തുക എന്നിവയാണ് സന്ദർശനത്തിന്റെ ലക്ഷ്യം ഇരു രാജ്യങ്ങളുമായി ഇന്ത്യ നിലവിൽ പ്രതിരോധ അഭ്യാസം സേനാ പരിശീലനം നയതന്ത്ര വിദഗ്ധരുടെ സന്ദർശനം എന്നിവ നടത്തിവരുന്നുണ്ട് ഭാവിയിൽ പ്രതിരോധ സഹകരണം മെച്ചപ്പെടുത്താനും സഹകരണം വർദ്ധിപ്പിക്കാനും സന്ദർശനം സഹായകമാകുമെന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ പ്രസ്താവനയിൽ അറിയിച്ചു

പ്രവർത്തന സജ്ജതയും നുഴഞ്ഞുകയറ്റം തടയുന്നതിനുള്ള ചട്ടക്കൂടിനെക്കുറിച്ചും സൈനിക ഉദ്യോഗസ്ഥർ വിശദീകരിച്ചു

അതിർത്തി ജില്ലയായ കുപ്വാരയിലെ മുൻനിര മേഖലകളും രാജ്യരക്ഷാമന്ത്രി സന്ദർശിച്ചതായി കരസേനാ വൃത്തങ്ങൾ പറഞ്ഞു

ബൽബിർ പോസ്റ്റ് സന്ദർശിക്കുന്ന ആദ്യ രാജ്യരക്ഷാമന്ത്രിയാണ് ശ്രീമതി

നിയന്ത്രണരേഖയിലൂടെയുള്ള സൈനൃത്തിന്റെ മുഴുവൻ സമയ സൂക്ഷ്മ കാവലിനെയും സേവന വ്യെശ്രിഷ്ട്യത്തെയും കേന്ദ്രമന്ത്രി അഭിനന്ദിച്ചു

കരസേനാ വിഭാഗം പ്രത്യേക സുരക്ഷാസേന ജമ്മുകശ്മീർ പോലീസ് സി

എഫ് എന്നിവരുടെ സംയുക്ത സംഘത്തിന്റെ നേതൃത്വത്തിലാണ തെരച്ചിൽ ഗ്രാമങ്ങളിലെ എല്ലാ പ്രധാന വഴികളും അടച്ച് വീടുകൾ തോറുമാണ് സംഘം പരിശോധന നടത്തുന്നത്

എൻ റിപ്പോർട്ട് വിശദാംശങ്ങളുമായി കൃഷ്ണ

ന്യൂസ്ഡെസ്ക് ആകാശവാണി

കനത്ത മഴയും ഉത്തരാഖണ്ഡിൽ നിന്നും വരുന്ന ജലവുമാണ് സംസ്ഥാനത്തിന് ഭീഷണിയാകുന്നത് സംസ്ഥാനത്തെ കിഴക്കൻ മേഖകൾ ടറായ് എന്നിവ ഇപ്പോൾ തന്നെ പ്രളയക്കെടുതികളിലാണ്

നാളെ വര്യ്ക്ക് സംസ്ഥാനത്ത് പിവിധ മേഖലകളിൽ കനത്ത് മഴ് തുടരുമെന്ന് കാലാവസ്ഥാ വിഭാഗം മുന്നറിയിപ്പ് നിൽകി

സംസ്ഥാനത്ത് കാസറഗോഡ് ഒഴികെയുള്ള എല്ലാ ജില്ലകളിലും അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്

അതിനിടെ കോഴിക്കോട് ജില്ലയിൽ കഴിഞ്ഞദിവസം എച്ച്

ആരോഗ്യ വകുപ്പിന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്തുടെ നീളം പ്രതിരോധ നടപടികളും അവബോധ പ്രവർത്തനങ്ങളും ഊർജിതമാക്കിയിരിക്കുകയാണ്

ഒരു റോഡ് വികസന പദ്ധതി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

വാർത്താ ഏജൻസിയായ റോയിറ്റേഴ്സിലെ രണ്ടു മാധ്യമപ്രവർത്തകരെയാണ് കോടതി കുറ്റക്കാരായി പ്രസ്താവിച്ചത് വാ ലോൺ ക്യാവ് ഡേ ഓ എന്നിവരെയാണ് കുറ്റക്കാരായി കോടതി വിധിച്ചത് ഇവർക്ക് രണ്ടു വർഷത്തെ തടവും കോടതി വിധിച്ചു

രഹസ്യ സ്വഭാവമുള്ള രേഖകൾ ശേഖരിച്ചപ്പോൾ ഒഫിഷ്യൽ സീക്രട്ട് ആക്ട് ലംഘിച്ചതായും അദ്ദേഹം വിധിച്ചു

തീപിടിത്തത്തിൽ ആർക്കും പരിക്ക് പറ്റിയതായി സൂചനയില്ല

ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ വൻ ഭക്തജന തിരക്ക് അനുഭവപ്പെടുന്നതായാണ് സൂചന ജന്മാഷ്ടമി ആഘോഷങ്ങൾക്കായി ഉത്തർപ്രദേശിലെ മഥുരയും വൃന്ദാവനവും ഒരുങ്ങി

മുംബൈയിൽ ദഹി ഹണ്ഡി ആഘോഷത്തിന്റെ ഭാഗമായി ഗോവിന്ദ സമൂഹങ്ങൾ മനുഷ്യ പിരമിഡുകൾ തീർത്ത് ഉയരത്തിൽ കെട്ടിയിരിക്കുന്ന കുടങ്ങൾ ഉടയ്ക്കുന്ന മത്സരങ്ങളിൽ പങ്കെടുക്കുന്നു

ജന്മാഷ്ടമി വേളയിൽ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദും ഉപരാഷ്ട്രപതി എം വെങ്കയ്യ നായിഡുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു നിഷ്കാമ കർമ്മമെന്ന ആഗോള സന്ദേശമാണ് ശ്രീകൃഷ്ണന്റെ ജീവിതവും ദർശനവുമെന്ന് ശ്രീ കോവിന്ദ് സന്ദേശത്തിൽ പറഞ്ഞു

പ്രസ്പരയിലെ അവസാന ടെസ്റ്റ് മത്സരം വെള്ളിയാഴ്ച ഓവലിൽ നടക്കും

മലേഷ്യ ഇന്തോനേഷ്യ ശ്രീലങ്ക എന്നീ രാജ്യങ്ങളിലേക്ക് ഇപ്പോൾത്തന്നെ ഇന്ത്യ നാളികേര ഉത്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്നുണ്ട് അമേരിക്കയിലേക്കും യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും നാളികേര ഉത്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്ന ഇന്ത്യ അധികം വൈകാതെ ആഗോളരംഗത്ത് മേൽക്കൈ നേടുമെന്നും മന്ത്രി പറഞ്ഞു

ജനങ്ങളെയും ദുരന്ത നിവാരണ രക്ഷാസേനകളെയും ജാഗ്രതയോടെ നിലനിർത്തുന്നതിനാണ് മോക്ഡ്രിൽ